തിലോത്തമൻ സപ്ലൈകോ ഗോഡൌണുകളിൽ നിന്നും റേഷൻകടകളിലേക്ക് കൊണ്ടുപോകുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ കൃത്യത ഉറപ്പാക്കാൻ ഗോഡൌണുകളിൽ സിസിടിവി ക്യാമറ സ്ഥാപിക്കുമെന്ന് മന്ത്രി പി

ഇത്തരത്തിൽ കൊണ്ടു പോകുന്ന ധാന്യങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ലെന്ന

എന്നിട്ടും പരാതികൾ ഉയർന്നത് ഗവൺമെന്റ് ഗൌരവപ്രമായി കണക്കിലെടുക്കുമെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ അറിയിച്ചു